രാഷ്ട്രീയ നേതൃത്വം വിമതശ്ല്പ്പൂർ ഒഴിവാക്കാൻ തിരക്കിട്ട സമവായ ചർച്ചകൾ

പേരിൽ പുറത്തുവന്ന ശബ്ദരേഖയെകുറിച്ച് ജയിൽവകുപ്പ് അന്വേഷണം തുടങ്ങി

ഇബ്രാഹിംകുഞ്ഞിന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ

പത്രികാസമർപ്പണത്തിനുള്ള കാലാവധി ഇന്ന് അവസാനിക്കും

മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പത്രിക സമർപ്പിച്ചത്

ശക്തരായ ജനകീയ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് മുന്നു മുന്നണികളും ശ്രമിച്ചത് വിദ്യാർത്ഥികളടക്കം സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ട് കഴിഞ്ഞ തവണ മികച്ച പ്രകടനം കാഴ്ചവച്ച വനിതകൾക്ക് സംവരണം നോക്കാതെ തന്നെ മുന്നണികൾ ഇത്തവണ സീറ്റ് നൽകി ഭരണം നിലനിർത്താനുള്ള തീവ്രപരിശ്രമത്തിലാണ് എൽ

എഫ് എന്നാൽ ശക്തമായ മുന്നേറ്റം നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് യു

എഫും എൻ

എയും

രോഗലക്ഷണം ഇല്ലാത്തവർക്കും നേരിയ ലക്ഷണം മാത്രമുള്ളവർക്കും ആയുർവേദ ചികിത്സ ആകാമെന്നും സംസ്ഥാന ആയുഷ് വിഭാഗം ഉത്തരവിറക്കി രോഗികളുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രമേ ആയുർവേദ ചികിത്സ നല്കാവൂ എന്നും ഉത്തരവിലുണ്ട്

ശബ്ദരേഖ ചോർന്നത് ജയിലിൽ നിന്ന് അല്ലെന്ന് അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു ശബ്ദരേഖ സ്വപ്നയുടേതാണോ എന്നു വ്യക്തമാക്കാൻ സൈബർസെൽ സഹായം തേടുമെന്ന് ജയിൽ ഡിജിപി ഋഷിരാജ് സിംഗ് മാധ്യമങ്ങളോട് പറഞ്ഞു

ആര്യോഗ്യസ്ഥി മോശമാണെന്ന മെഡിക്കൽ റിപ്പോർട്ടിനെ തുടർന്ന് പ്പ്കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടർുക്യാണ് ഇബ്രാഹിം കുഞ്ഞ് ഇന്നലെ രാവിലെ വിജിലൻസ്ട് അറസ്റ്റ് ചെയ്ത ഇബ്രാഹിം കുഞ്ഞിനെ ജഡ്ജി നേരിട്ട് ആശുപത്രിയിൽ എത്തിയാണ് റിമാൻഡ് ചെയ്തത്

ചവറയിൽ ഹാഷിഷ് ഓയിലുമായി രണ്ടുപേരെയും കൊല്ലം നഗരത്തിൽ കഞ്ചാവുമായി പിടികൂടി

സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു

നാളെ വരെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴയ്ക്ക് സാധ്യതയുണ്ട്